സമാധി സമ്മേളനം ശിവഗിരിയിൽ കേന്ദ്രമന്ത്രി ആർ

ഹൂസ്റ്റണിൽ നാളെ നടക്കുന്ന ഹൌഡിമോഡി പരിപാടിയിൽ അമേ രിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും അൻപതിനായിര ത്തോളം പ്രവാസി ഇന്ത്യക്കാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് സംബന്ധിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ദൃഢത വ്യക്തമാക്കുന്ന നടപടിയാണ്

ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ന്യൂസിലന്റ് ബംഗ്ലാദേശ് ജമൈക്ക രാഷ്ട്ര തലവന്മാരും ഐകൃരാഷ്ട്ര സെക്രട്ടി ജനറലും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് സച്ഛ്ഭാരത് അഭിയാന് തുടക്കം കുറിച്ചതിന്റെ പേരിൽ ബിൽ ആന്റ് മിലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേ ഷൻ ഏർപ്പെടുത്തിയ ആഗോള പുരസ്കാരവും പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും അമേരിക്കൻ സന്ദർശനം ഒട്ടേറെ അവസരങ്ങളുടെ കർമ്മ ഭൂമിയായി ഇന്ത്യയെ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അഭിപ്രായപ്പെട്ടു ഇരു രാഷ്ട്രങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സമാധാനവും സ്ഥിരതയും സുരക്ഷയും നിറഞ്ഞ സമ്പദ്സമൃദ്ധമായ ലോകസൃഷ്ടിക്ക് സഹായിക്കു മെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രദേഷ്ടെടു അടുത്തടുത്ത രണ്ടുവർഷങ്ങളിൽ വെള്ളപ്പൊക്കം നേരിട്ട കേരളത്തിന് ദുരന്തം അതിജീവിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രസംഘത്തോട് ആവശ്യപ്പെട്ടു

നാശനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ടും മന്ത്രി സംഘത്തിന് കൈമാറി

എന്നാൽ യഥാർത്ഥ നഷ്ടം അതിലും ഏറെയായിരിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു

രദേഷ്ടെടു കേന്ദ്ര മോട്ടോർവാഹന നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നിയ മലംഘനങ്ങൾക്ക് ഈടാക്കേണ്ട പിഴ നിശ്ചയിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃ ത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും പല നിയമ ലംഘനങ്ങൾക്കും പത്തിരട്ടി വരെയാണ് നിയമഭേദഗതിയിൽ നിർദ്ദേശിച്ചിരി ക്കുന്നത് ഈ തുക ഇതുവരെ സംസ്ഥാനത്ത് ഈടാക്കി തുടങ്ങിയിട്ടില്ല ഇക്കാ ര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്

പരസ്യ പ്രചാരണത്തിന് ഇന്നുകൂടി അ നുമതിയുണ്ടെങ്കിലും ശ്രീനാരായണഗുരു സമാധി പ്രമാണിച്ച് മൂന്നു മുന്ന ണികളും അത് ഒഴിവാക്കുകയായിരുന്നു

ഡി എഫ് സ്ഥാനാർത്ഥി ജോ സ് ടോമും എൽ

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനും എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരിയും ഇന്ന് എസ്

പി ശാഖാ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന സമാധിദിന ചടങ്ങുകളിൽ പങ്കെടുക്കും തിങ്കളാഴ്ചത്തെ വോട്ടെടുപ്പിന് ഔദ്യോഗിക ക്രമീകരണങ്ങൾപൂർത്തിയായിക്കഴിഞ്ഞു

മരട് നഗരസഭ നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി

ജെ പി അഖി ലേന്ത്യാ ജനറൽ സെക്രട്ടറി വി മുരളീധരറാവു പറഞ്ഞു

രാജ്യമൊട്ടാകെ പൌരന്മാർ അനുഭവിക്കുന്ന അവകാശങ്ങൾ കശ്മീരി ജനതക്ക് നിഷേധിക്കപ്പെടാനും ഇത് കാരണമായെന്ന് ബി ജെ പി കോഴിക്കോട്ട് സംഘടിപ്പിച്ച പുതിയ കശ്മീർ പുതിയ ഇന്ത്യ ചിന്താ സായാഹ്നത്തിൽ മുരളീധരറാവു അഭിപ്രായപ്പെട്ടു

ഇന്നലെ ഗോവയിൽ ചേർന്ന ജി

ടി കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം ഇവയുടെ ജി

അതേസമയം ഹോട്ടൽ മുറി വാടക കുറയും ആയിരം രൂപയിൽ കുറഞ്ഞ മുറികൾക്ക് നികുതിയില്ല

ഒരുമതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും ഉദ്ഘോഷിച്ച ഗുരു വിന്റെ സമാധിദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നാടെങ്ങും ആചരി ക്കുന്നു

കേന്ദ്രസഹമന്ത്രി ആർ

കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചകഴിഞ്ഞ് ഗുരു വിഹാറിൽ സമൂഹ പ്രാർത്ഥനയും തുടർന്ന് സമാധിദിന സമ്മേളനവും നട ക്കും

ഉസ്ബെക്കിസ്ഥാൻ താരമാണ് പൻഘലിന്റെ എതിരാളി

സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് എണ്ണൂറോളം കായികതാരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെ ടുക്കും

ദർവ്വെട്ടറ വേമ്പനാട്ടുകായലിലെ മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കാൻ മത്സ്യസംര ക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ചേർത്തല യിൽ പറഞ്ഞു കരിമീൻ ഉൾപ്പെടെ മത്സൃങ്ങളെ മുട്ടയിടുന്ന കാലത്ത് പിടി ക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പെരുമ്പളം ദ്വീപിൽ കക്ക സംസ്കരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രുട്ട്ട്ട്ട്ട്ട്ട്ട പിറവം വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് വൈദികർക്ക് പ്രവേശി ക്കാനും കുർബാന നടത്താനും പൊലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വൈദി കരുടെ ആരാധന തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു സുപ്രീംകോടതി രണ്ടുവർഷം മുമ്പുതന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന് ആരാധനാ അവകാശം നൽകിയിരുന്നെങ്കിലും യാക്കോബായ വിഭാഗത്തിന്റെ എതിർപ്പുമൂലം വിധി നടപ്പാക്കാനായിട്ടില്ല രദ്ദമ്പ്പെട്ടറ കണ്ണൂർ ചെറുപുഴയിലെ കരാറുകാരൻ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു ചെറുപുഴയിലെ ലീഡർ കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ് അറ സ്റ്റിലായത്

ട്രസ്റ്റിന് കീഴിലെ ആശുപത്രി കെട്ടി ടത്തിലാണ് ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ട്രസ്റ്റിന്റെ ഫണ്ട് ബോർഡംഗങ്ങൾ തട്ടിയെടുത്തായി ആരോപിച്ച് ഒരു മുൻ ഭാരവാഹി നൽകിയ പരാതിയിലാണ് അഞ്ചുപേർ അറസ്റ്റിലായത് ദർവ്വെട്ടറ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭി ക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തമാസം ഡൽഹിയിൽ യോഗം വിളിക്കാ മെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി എം കെ രാഘവൻ എം പിക്ക് ഉറപ്പ് നൽകി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ സാന്നിധൃത്തിൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം എയർ ഇന്ത്യക്ക് പുറമെ സ്വകാര്യ വിമാനക്കമ്പനി പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും യോഗ ത്തിൽ പങ്കെടുപ്പിക്കും

പ്രതിനിധി സമ്മേളനം മറ്റന്നാൾ മന്ത്രി കെ

സുഹൃദ് സമ്മേളനം മന്ത്രി ടി

നിരാഹാര സമരത്തിന്റെ കാര ണങ്ങൾ കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത സമരമാർഗവുമായി മുന്നോട്ടു പോകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഇന്ന് രാവിലെ പത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാരങ്ങാനീര് നൽകി ഉണ്ണിത്താന്റെ സമരം അവസാനിപ്പിക്കും രുട്ടിട്ട്ട്ട്ട്ട്ട്ട അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എട്ടാമത് സുഹൃദ് സംഗമം നാളെ രാവിലെ മഞ്ചേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടിക്കും

എ ഖാദർ എം

ആകാശവാണിയിലെ അവതാര കരും പ്രക്ഷേപകരും പരിപാടിയിൽ പങ്കെടുക്കും

ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർക്കുതന്നെ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം

ഡി എഫിന്റെ കാലത്ത് പൂർത്തീകരിച്ച പാലത്തിന്റെ ഭാഗങ്ങൾക്ക് ബലക്ഷയമില്ലെന്നാണ് വിദഗ്ദ്ധ രുടെ കണ്ടെത്തൽ

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട വയനാട് ദേശീയപാതയിലെ പത്തുവർഷമായി തുടരുന്ന രാത്രിയാത്രാ നിരോധനം നീക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇപ്പോഴും നിസംഗതയും അവഗണനയും തുടരുകയാണെന്ന് മുസ്ലിംലീഗ് ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി